ചില സംഘടനകൾ നാളെ ആഹ്വാനം ചെയ്ത്ത ഹർത്താൽ അംഗീകാരമില്ലാത്താണെന്ന് ഡിജിപി ല്ലോക്നാഥ് ബെഹ്റ

പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങൾ ആക്രമാസക്തമാകരുതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ്ഖാൻ പറ ഞ്ഞു സമാധാനപരമായി സ്മരം ചെയ്യാൻ എല്ലാവർക്കും അധി കാരമുണ്ട് എന്നാൽ നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവ കാശമില്ലെന്നും ഇതു സംബന്ധിച്ച ഭിന്നാഭിപ്രായങ്ങൾ കേൾക്കാനും ചർച്ച് ചെയ്യാനും തയ്യാറാണെന്നും അദ്ദേഹം കൊച്ചി യിൽ വ്യക്തമാക്കി പൌരത്വ് ഭേദഗതി നിയമത്തിനെതിരെ തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ഭരണ പ്രതിപക്ഷ കക്ഷി കളുടെ സംയുക്ത സത്യഗ്രഹം ആരംഭിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാ ക്കൾ പങ്കെടുക്കുന്നുണ്ട്

രാജ്യത്തെ പ്രത്യേക മാർഗത്തിലൂടെ തിരിച്ചുവിടാനാണ് നീക്ക മെന്ന് പൌരത്വഭേഗഗതി നിയമത്തിനെതിരായ സത്യഗ്രഹ സമരത്തിൽ പങ്കെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

കേന്ദ്രത്തിന്റേത് അടിച്ചമർത്തൽ നയമാണെന്ന് സമരത്തിൽ പങ്കെടുത്ത പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു പൌരത്വ നിയമ ഭേദഗതിയ്ക്കെതിരെ ഭരണ പ്രതിപക്ഷ കക്ഷി കളുടെ സമരം ഏറ്റവും മനോഹരമായ സന്ദേശമാണ് നൽകുന്ന തെന്ന് മന്ത്രി കടകംപളളി സുരേന്ദ്രൻ അഭിപ്പാ്യപ്പെട്ടു കേരളം ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണെന്നും അദ്ദേഹ്ട് തിരുവനന്തപുരത്ത് പറഞ്ഞു എൽഡിഎഫിന്റെയും യുഡിഎഫിന്റെയും നേതൃയോഗങ്ങൾ ഉച്ച് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് പേരും പൌരത്വനിയമ ഭേദഗതി യുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ആസൂത്രണം ചെയ്യുന്നതി നാണ് നേതൃയോഗങ്ങൾ ചേരുന്നത് എൽ ഡി എഫ് യോഗം എ കെ ജി സെന്ററിലും യുഡിഎഫ് യോഗം പ്രതിപക്ഷനേതാവിന്റെ വസതിയിലുമാണ് ചേരുന്നത് ആലുവയിൽ മണിപ്പൂർ ഗവർണർ നെജ്മ ഹെപ്ത്തുള്ളയെ യൂത്ത് കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടി ഇവരെ പൊലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി

ഇന്ത്യൻ സൈന്യത്തിന്റെ ധീരതയും വീര്യവും ചരിത്രത്തിൽ തങ്ക ലിപിക ളിൽ സ്ഥാനം പിടിക്കുമെന്നും പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു

കേന്ദ്ര സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ വിവിധ ഐസറുകളിലെ ഡയറക്ടർമാർ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്നിവരുടെ സമ്മേളനത്തിലായിരിക്കും അവാർഡുകൾ നൽകുക ബജറ്റിന് മുന്നോടിയായി ധനമന്ത്രി നിർമലാ സീതാരാമൻ ന്യൂഡൽഹിയിൽ ചർച്ച ആരംഭിച്ചു സ്റ്റാർട്ടപ്പ് ഡിജിറ്റൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമായാണ് ധനമന്ത്രി ചൂർച്ച നടത്തുന്നത് ധനകാര്യ സഹമന്ത്രി അനുരാഗ് താക്കൂർ ധ്ന സാമ്പത്തികകാര്യ റവന്യൂ ടെലികോം ഇലക്ട്രോണിക് ഐടി സെക്രട്ടറിമാരും മുഖ്യ സാമ്പ ത്തിക ഉപദേഷ്ടാവും പ്രതൃക്ഷ് പരോക്ഷ നികുതിബോർഡ് ചെയർമാൻമാരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് റേപ്പ് ഇൻ ഇന്ത്യ പരാമർശത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടി യതായി റിപ്പോർട്ട് കേന്ദ്രമന്ത്രി സ്മൃതിഇറാനിയുടെ പരാതിയിലാണ് കമ്മീഷന്റെ നടപടി കഴിഞ്ഞ ദിവസം ഝാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിലാണ് രാഹുൽ ഈ പരാമർശം നടത്തിയത്

ഏഴു മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് അഞ്ച് നക്സൽ ബാധിത മണ്ഡലങ്ങളിൽ വൈകിട്ട് മൂന്നിനും ബാക്കി പത്ത് മണ്ഡലങ്ങളിൽ അഞ്ചിനും അവസാനിക്കും

കനത്ത സുരക്ഷയിലാണ് വോട്ടെടുപ്പ്

കലാപവും പൊതുമുതൽ നശി പ്പിക്കുന്നതും ഗൌരവമായി കണ്ട കോടതി അവ ഉടൻ അവസാനി പ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ അക്രമങ്ങൾ സ്വമേധയാ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു വിഭാഗം അഭിഭാഷകരാണ് കോടതിയെ സമീപിച്ചത് ഇതു സംബന്ധിച്ച പരാതി സമർപ്പിക്കാൻ അഭിഭാഷകരോട് ആവ ശ്യപ്പെട്ട ജസ്റ്റിസുമാരായ എസ് എ ബോബ്ഡെ ബ്രിിആർ ഗവായ് സൂര്യകാന്ത് എന്നിവരടങ്ങിയ ബെഞ്ച് കേസ് നാളെ വാദം കേൾക്കാ മെന്നറിയിച്ചു

ബംഗാളിലെ കല്യാണി മുൻസിപ്പൽ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം അഞ്ച് മണിക്കാണ് മത്സരം പൊതു വിദ്യാലയുങ്ങളിൽ ഉണ്ടാകേണ്ട അടിയന്തര സൌകര്യ ങ്ങളുടെ വിശദാംശങ്ങൾ ഓൺലൈൻ മുഖേന സമ്പൂർണ്ണയിൽ അപ്ഡേറ്റ് ചെയ്യാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദേശിച്ചു

ക്സാസ്മുറീകളുടെ വിശദാംശങ്ങൾ കുടിവെളള ലഭ്യത ടോയ്ലറ്റ് സൌകര്യം പ്രാഥമിക ചികിത്സാ സൌകര്യത്തിന്റെ ലഭ്യത തുടങ്ങിയ വയുടെ വിശദാംശങ്ങളാണ് നൽകേണ്ടത് മാധ്യമപ്രവർത്തകൻ കെ

ബഷീർ കാറിടിച്ച് മരിച്ച കേസിൽ ശ്രീറാം വെങ്കിട്ടരാമനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുന്ന സമിതിയുടെ തെളിവെടുപ്പ് ഇന്ന് ആരംഭിക്കും പ്രിൻസിപ്പൽ സെക്രട്ടറി സഞ്ജയ് ഗാർഗിനും ഊർജ സെക്രട്ടറി ഡോ ബി അശോകുമാണ് അന്വേഷണ സമിതി അംഗങ്ങൾ

നടപ്പന്തലിലും മറ്റും മണിക്കൂറുക ളോളം നീളുന്ന ക്യൂവാണ് അനുഭവപ്പെടുന്നത്

ഇ്പോൾ അത് ഇരട്ടിയിലധികമായി

എസ് സൌകര്യം ഉപയോഗിച്ചോ ഉപ്പഭോക്താക്കൾക്ക് കാർഡുകൾ ബന്ധിപ്പിക്കാവുന്നതാണ് നികുതിദായകർക്ക് ഒട്ടേറെ സേവനങ്ങളാണ് ഇതുവഴി ലഭ്യമാകുകയെന്ന് വകുപ്പ് അറിയിച്ചു്

ഈ ട്രെയിനുകൾക്ക് എറണാകുളം ടൌൺ കോട്ടയം എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുണ്ടാകും

ദുബായിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന എമിറേറ്റ്സ് വിമാനത്തിന്റെ സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയി ലായിരുന്നു സ്വർണ്ണം കണ്ടെത്തിയത് ആലപ്പുഴ തുമ്പോളിയിൽ ഇന്നലെ രാത്രിയുണ്ടായ ആക്രമണ ത്തിൽ ഒരാൾ കൂടി മരിച്ചു

അക്രമത്തിൽ മറ്റൊരാൾ ഇന്നലെ രാത്രി മരിച്ചിരുന്നു ഗുണ്ടാ സംഘങ്ങൾ തമ്മിലെ സംഘർഷത്തെ തുടർന്നായിരുന്നു സംഭ വമെന്ന് പൊലീസ് അറിയിച്ചു

ഇന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലെ ചെരിയാനുള്ള കാരണം പറയാനാവൂ എന്നാണ് വനം വകുപ്പിൽ നിന്നും ലഭിക്കുന്ന വിവരം

കേന്ദ്ര വന നഗരകാര്യവകുപ്പ് സെക്രട്ടറിയും മറ്റ് ഉന്നതരും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് പ്പാസ്റ്റിക് രഹിത പെരിയാർ പദ്ധതിയ്ക്ക് അയ്യപ്പൻ കോവിലിൽ തുടക്കമായി എല്ലാ ഞായറാഴ്ചകളിലും സന്നദ്ധ പ്രവർത്തകർ പെരിയാർ തീരത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാറ്റി റീസൈക്സിംഗ് കേന്ദ്ര ത്തിൽ എത്തിക്കുന്നതാണ് പദ്ധതി ആലപ്പുഴയിലെ ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും മികച്ച പ്രവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചു ഡൽഹിയിൽ മറ്റന്നാൾ നടക്കുന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അജിത പുരസ്കാരം ഏറ്റുവാങ്ങും